ചിത്രയ്ക്ക് പത്മഭൂഷൺ

ആറ് മലയാളികൾ പത്മ പുരസ്ക്കാര നിറവിൽ

എസ്

കെ മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും

ദേശീയ തലസ്ഥാനത്തെ രാജ്പഥിൽ നടക്കുന്ന പ്രധാന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് റിപ്പബ്ലിക് ദിന പരേഡിനെ അഭിവാദ്യം ചെയ്യും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകം സന്ദർശിക്കുന്ന തോടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാവുക രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരനായകർക്ക് പ്രണാമമർപ്പിച്ച് അദ്ദേഹം പുഷ്പചക്രം സമർപ്പിക്കും ദേശീയഗാനത്തിന്റെ അകമ്പടിയോടെ ദേശീയപതാക ഉയർത്തും ത്രുടർന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ സല്യൂട്ട് സ്വീകരിച്ച് പ്പർ്ർഡ് ആരംഭിക്കും

ഇന്ത്യയുടെ സൈനികശേഷിയും സാർസ്കാരിക വൈവിദ്ധ്യവും സാമൂഹിക സാമ്പത്തിക പുരോഗതിയും വിളംബരം ചെയ്യുന്നതാകും റിപ്പബ്ലിക് ദിനാഘോഷം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എം റെയിൻബോ എഫ്

തുടക്കത്തിൽ പരിഷ്കരണൂങ്ങൾ തെറ്റിധാരണ ഉണ്ടാക്കുമെങ്കിലും സർക്കാർ കർഷകരുടെ ക്ഷേമത്തിന് ്വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോവിഡ് സാഹ്ച്ചര്യത്തിലും ഭക്ഷ്യവസ്തുക്കൾ പാൽ ഉത്പന്നങ്ങൾ എന്നിവയിൽ സ്വയം പര്യാപ്തത നേടാൻ കർഷകരുടെ പ്രവർത്തനങ്ങൾ മൂലം സാധൃമായി

ഇന്ത്യ സ്വന്തമായി കോവിഡ് വാക്സിൻ ഉത്പാദിപ്പിച്ചതിനെയും ഇപ്പോൾ നടക്കുന്ന വിപുലമായ പ്രതിരോധ കുത്തിവയ്പിനെയും രാഷ്ട്രപതി പ്രകീർത്തിച്ചു

കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിലും മരണനിരക്ക് കുറയ്ക്കുന്നതിലും ഡോക്ടർമാരും ഭരണകർത്താക്കളും വഹിച്ച പങ്കും ശ്രീ

കോവിഡ് കാലഘട്ടത്തിൽ സാഹോദര്യമെന്ന ഭരണഘടനാ മൂല്യത്തിലൂന്നി നാം പ്രവർത്തിച്ചു

പാരീസ് ഉടമ്പടി മുന്നോട്ടു വച്ച ലക്ഷ്യത്തെ ഇന്ത്യ മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കാലാവസ്ഥാ പൊരുത്തപ്പെടൽ ഉച്ചകോടിയെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

ഒഡിഷ തീരത്തെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് ഡി

കരയിൽ ്നൂന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈൽ കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു

ആർ ഡി ഒ യിലെയും ബെല്ലിലെയും ശാസ്ത്രജ്ഞരെയും വ്യോമസേനയിൽ നിന്നുള്ള സംഘത്തെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങ് അഭിനന്ദിച്ചു

ആർ ഡി ഒ ചെയർമാൻ ഡോ

സതീഷ് റെഡ്സിയും അഭിനന്ദനം അറിയിച്ചു

വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും വിനോദ സഞ്ചാര സാധൃതകൾ ഭക്ഷണ വൈവിധൃം കരകൌശല ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ പ്രദർശിപ്പിക്കും സാംസ്കാരിക ടൂറിസം മന്ത്രി പ്രഹ്ളാദ് സിങ് പട്ടേലിന്റെ സാന്നിധ്യത്തിൽ ലോക്സഭാ സ്പീക്കർ ഓംബിർള ഉദ്ഘാടനം ചെയ്യും

വാർത്താപ്രക്ഷേപണ മന്ത്രാലയവും വിവിധ മാധ്യമ യൂണിറ്റുകളും ഭാരത് പർവിനായി തയ്യാറെടുത്തു കഴിഞ്ഞു പ്രസാർഭാരതി സജ്ജമാക്കിയ വെർച്ചൽ സ്റ്റാളിൽ ഏകഭാരതം ശ്രേഷ്ഠഭാരതം ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കും

രു റിപ്പോർട്ട്

ഗായകൻ എസ്

ബാലസുബ്രഹ്മണ്യത്തിനു മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു കേരളത്തിൽ നിന്ന് ഗായിക കെ എസ് ചിത്രയ്ക്ക് പത്മഭൂഷണും കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അത്ലറ്റിക് കോച്ച് ഒ

നമ്പ്യാർ തോൽപ്പാവക്കൂത്ത് കലാകാരൻ കെ

രാമചന്ദ്ര പുലവർ സാഹിത്യകാരൻ ബാലൻ പുതേരി ഡോ ധനഞ്ജയ് ദിവാകർ സദ്ദേവ് എന്നിവർക്ക് പത്മശ്രീ പുരസ്ക്കാരവും നൽകി രാജ്യം ആദരിച്ചു തരുൺ ഗൊഗോയ് രാംവിലാസ് പസ്വാൻ കേശുഭായ് പട്ടേൽ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകി

ഗായിക ബോംബെ ജയശ്രീക്ക് പത്മശ്രീ നൽകിയപ്പോൾ ജാപ്പനീസ് മുൻ പ്രധാനമന്ത്രി ഷിൻഡോ ആബെ പത്മവിഭൂഷൺ പുരസ്ക്കാരത്തിന് അർഹനായി

വിവിധ മേഖലകളിൽ നിന്നുള്ള ഈ അസാധാരണ വ്യക്തികൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഗ്ദൂണകരമായ മാറ്റങ്ങൾ വരുത്തിയെന്നും ശ്രീ

ഒരു കോടി മൂന്ന് ലക്ഷത്തിലേറെ പേർ രോഗമുക്തരായി

ബ്രിട്ടണിൽ മരണസംഖ്യ ഒരു ലക്ഷത്തോട് അടുക്കുകയാണ്

എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എ ടി കെ മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും

ഇന്നലെ നടന്ന ചെന്നൈയിൻ മ്മുംർബെ പോരാട്ടം സമനിലയിൽ കലാശിച്ചിരുന്നു